കോഴിക്കോട് കൂടത്തായ് ദ്ദുരൂഹമരണ കേസിൽ ജോളിയുൾപ്പടെ മൂന്ന് പ്രതികളേയും ആറു ദിവസത്തെ പൊലീസ് കസ്റ്റഡിയിൽ വിട്ടു

തിലോത്തമൻ

ൾ ൽ ൾ ഇന്ത്യാ ചൈന രണ്ടാമത് അനൌപചാരിക ഉച്ചകോടിയിൽ പങ്കെ ടുക്കാൻ ചൈനീസ് പ്രസിഡണ്ട് ഷി ജിൻ പിങ് നാളെ തമിഴ്നാ ട്ടിലെ മാമല്ലപുരത്തെത്തും രണ്ടു ദിവസത്തെ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഷി ജിൻ പിങ് സുപ്രധാന ഉഭയകക്ഷി വിഷയങ്ങളും മേഖല നേരിടുന്ന പ്രശ്നങ്ങളും ചർച്ച ചെയ്യും ഭീകര പ്രവർത്തനങ്ങൾ നേരിടാനാവശ്യമായ കൂട്ടായ പ്രവർത്തനങ്ങളിൽ ഊന്നിയായിരിക്കും ഇരു നേതാക്കളുടെയും സംഭാഷണം കശ്മീർ പ്രശ്നം ചൈന ഏത് തരത്തിൽ ചർച്ചയിൽ ഉന്നയി ക്കുമെന്ന് ലോകം ഉറ്റു നോക്കുകയാണ് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പാക് സൈനികമേധാവി എന്നിവരുമായി നടത്തിയ കൂടിക്കാഴ്ചക്കു ശേഷമാണ് ഷി ജിൻ പിങ് ഇന്ത്യയിൽ എത്തു ന്നത് കശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണെന്നും മറ്റൊരു രാജ്യവും ഇക്കാരൃത്തിൽ ഇടപെടാതിരിക്കുകയാണ് ഉചിതമെന്നും ഇന്ത്യ ഇതിനകം വൃക്തമാക്കിയിട്ടുണ്ട് ഇരു രാജൃങ്ങളും തമ്മിൽ അഭിപ്രായ വൃത്യാസങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് പുതിയ മാതൃക രൂപപ്പെടുത്തേണ്ട തുണ്ടെന്ന് ചൈനീസ് സ്ഥാനപതി സുൻവീദോങ് കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടിരുന്നു ഉച്ചകോടിയുടെ വേദിയായ മാമല്ലപുരത്തും ചെന്നൈയിലും പരിസര പ്രദേശങ്ങളിലും അതീവ സുരക്ഷ ഏർപ്പെടുത്തി തീര രക്ഷാ സേനയെയും അയ്യായിരത്തിലേറെ പൊലീസുകാരെയും സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട് കോഴിക്കോട് കൂടത്തായ് ദുരൂഹമരണ കേസിൽ ജോളിയുൾപ്പടെ മൂന്ന് പ്രതികളേയും ആറു ദിവസത്തെ പൊലീസ് കസ്റ്റഡിയിൽ വിട്ടു താമരശ്ശേരി ജുഡിഷ്യൽ ഒന്നാം ക്ലാസ് മജി സ്ട്രേറ്റ് കോടതിയാണ് പൊലീസിന്റെ അപേക്ഷയിൽ ഇവരെ കസ്റ്റ ഡിയിൽ വിട്ടത്

ജോളിയ്ക്കു പുറമെ മാത്യു പ്രജികുമാർ എന്നിവരെയാണ് പൊലീസ് കസ്റ്റഡിയിൽ വിട്ടത് കോഴിക്കോട് ജില്ലാജയിലിൽ നിന്നും കന്നത്ത സുരക്ഷാ സന്നാഹത്തോ ടെയാണ് പ്രതികളെ ഹാജരാക്കിയത് പെരുച്ചാഴിയെ കൊല്ലാനാണ് സയനൈഡ് നൽകിയതെന്ന് കൂട ത്തായ് കൊലപാതക കേസിൽ അറസ്റ്റിലായ പ്രജികുമാർ മാധ്യമ ങ്ങളോട് പറഞ്ഞു രാവിലെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടു പോകുന്നതിനിടയിലാണ് പ്രജികുമാർ ഇക്കാരൃം പറഞ്ഞത് കൂടത്തായ് കൊലക്കേസ് പ്രതി ജോളിയെ അറിയില്ലെന്ന് പൊലീസ് തിരയുന്ന് ജോത്സൃൻ കൃഷ്ണകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു ജോളി തന്റെ അടുത്ത് വന്നതായി ഓർക്കുന്നില്ലെന്നും തകിട് പൂജിച്ച് നൽകാറുണ്ടെന്നും ഇതിനുള്ളിൽ ഭസ്മമാണെന്നും ജോത്സ്യൻ അറിയിച്ചു ഏതന്വേഷണത്തോടും സഹകരിക്കു മെന്നും കൃഷ്ണകുമാർ പറഞ്ഞു

രാജ്യത്ത് സവാളയുടെ ഉൽപ്പാദനത്തിലും ലഭ്യതയിലും ഗണ്യമായ കുറവ് ഉണ്ടായതിനാൽ വലിയ തോതിൽ വില വർദ്ധിച്ചിരുന്നു ഇത് തടയാൻ ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ സപ്ലൈകോ നേരിട്ടെത്തി നാഫെഡ് മുഖാന്തിരമാണ് സവാള വാങ്ങി സംസ്ഥാനത്ത് വിതരണം തുടങ്ങിയത് വിലക്കയറ്റം ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ മറ്റുൽപ്പന്നങ്ങൾക്കും ഇതേ മാതൃകയിൽ ഇടപ്പെടൽ നടത്താൻ സപ്ലൈകോവിന് ഗവൺമെന്റ് നിർദ്ദേശം നൽകിയതായി മന്ത്രി അറിയിച്ചു മരട് ഫ്ളാറ്റുകളിലെ ഉടമസ്ഥാവകാശ രേഖകളുടെ പ്രാഥമിക പരിശോധന ഇന്നാരംഭിക്കും ഉടമ്കളിൽ നിന്ന് നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്നത് ഇതിനുശേഷമായിരിക്കും അതിനിടെ ഫ്ളാറ്റുകൾ പൊളിക്കുന്നതിന് മേൽനോട്ടം വഹി ക്കാൻ വിദഗ്ദ്ധ എഞ്ചിനിയർ എസ് ബി സർവ്വത്തെ ഇന്ന് കൊച്ചി യിൽ എത്തും മരട് മുൻസിപ്പാലിറ്റിയെ നടപടികളിൽ സഹായി ക്കാൻ നിയോഗിച്ചു വിദഗ്ദ്ധ സമിതിയിൽ അദ്ദേഹത്തെ ഉൾപ്പെ ടുത്തി സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവിറക്കിയിട്ടുണ്ട് നിയന്ത്രിത സ്ഫോടനത്തിലൂടെ ഫ്ളാറ്റുകൾ പൊളിക്കുന്നതിന് മേൽനോട്ടം വഹിക്കുക സർവ്വത്തെ ആയിരിക്കും മുൻ വിജിലൻസ് മേധാവി ജേക്കബ് തോമസ് ഷൊർണൂർ കേരളാ മെറ്റൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ട റായി ചുമതലയേറ്റു കോടതി ഇടപെടലിനെ തുടർന്നാണ് നീണ്ട കാലം സസ്പെൻഷനിലായിരുന്ന ജേക്കബ് തോമസിനെ വീണ്ടും സർവീസിൽ പ്രവേശിപ്പിച്ചത് പാലാരിവട്ടം മേൽപ്പാലം കോടതിയുടെ അനുമതിയില്ലാതെ പൊളിക്കരുതെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു പാലം പൊളിക്ക രുതെന്നാവശ്യപ്പെട്ട് എഞ്ചിനീയർമാരുടെ സംഘടന നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഇടക്കാല ഉത്തരവ് തിരുവല്ലയിലെ ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശം തങ്ങൾക്കാണെന്ന ബിലീവേഴ്സ് ചർച്ചിന്റെ വാദം തെറ്റാണെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഭൂമി ഗവൺമെന്റി ന്റേത് തന്നെയാണെന്നും ചർച്ചിന് അനുകൂലമായി ഒരു കോടതി ഉത്തരവും നിലവിലില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം എസ്റ്റേറ്റിൽ വിമാനത്താവുളം വരുന്നതുമായി ബന്ധപ്പെട്ട് ഗവ സ്വീകരിച്ച നടപടികളെ കുറിച്ച് അറിയില്ലെന്നും എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശം തങ്ങൾക്കാണെന്ന് സുപ്രീംകോ ടതി തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ടെന്നും ബിലീവേഴ്സ് ചർച്ച് വക്താവ് ഫാദർ സിജോ പന്തപ്പള്ളിൽ പറഞ്ഞു മാനനഷ്ടകേസിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഗുജറാത്തിലെ സൂറത്ത് കോടതിയിൽ ഹാജരായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പ്രധാനമന്ത്രിയ്ക്കും മോദി സമുദായത്തിനുമെതിരെ അപമാനകരമായ പരാമർശം ഉന്നയിച്ചു വെന്ന പരാതിയിലാണ് രാഹുൽഗാന്ധിക്കെതിരെ കേസെടുത്തത് കേസിൽ കൂറ്റം ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം കോടതിയെ ബോധി പ്പിച്ചു കേസിന്റെ തുടർവേളയിൽ കോടതിയിൽ നേരിട്ട് ഹാജരാ കുന്നതിൽ നിന്ന് രാഹുൽ ഗാന്ധിയെ ഒഴിവാക്കണമെന്ന് അദ്ദേ ഹത്തിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു എന്നാൽ ഹർജിക്കാരന്റെ അഭിഭാഷകൻ ആവശ്യത്തെ എതിർത്തു

ജമ്മു കശ്മീരിൽ കരുതൽ തടങ്കലിലായിരുന്ന മൂന്ന് രാഷ്ട്രീയ നേതാക്കളെ ഭരണകൂടം വിട്ടയച്ചു മുൻ എം എൽ എ യാവാർ മിർ നാഷണൽ കോൺഫറൻസ് നേതാവ് നൂർ മൊഹമ്മദ് ഷൊഹൈബ് ലോണെ എന്നിവരെയാണ് വിട്ടയച്ചത് കശ്മീരിൽ വിനോദ സഞ്ചാരികൾക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം പിൻവലിച്ചു ഗവർണർ സത്യപാൽ മാലിക്കിന്റെ നിർദേശത്തെ തുടർന്നാണ് വിനോദ സഞ്ചാരികൾക്ക് കശ്മീർ സന്ദർശിക്കാൻ അനുവാദം നൽകിയത് തീവ്രവാദ ഭീഷണിയു ണ്ടെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് ആഗസ്റ്റ് രണ്ടിന് വിനോദ സഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് ഇന്ത്യയുടെ ബോക്സിംഗ് താരം മേരി കോം ലോക വനിതാ ബോക്സിംഗിന്റെ സെമി ഫൈനലിൽ കടന്നു

ഇതോടെ മേരി കോം മെഡലുറപ്പിച്ചു പൂനെയിൽ ഇന്ത്യാ ദക്ഷിണാഫ്രിക്കാ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ആദ്യ ്വിക്കറ്റ് നഷ്ടമായി

നേരത്തെ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു

അപേക്ഷാ ഫോറവും വിശദാംശങ്ങളും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വെബ് സൈറ്റിൽ നിന്ന് ലഭിക്കും നറുക്കെടുപ്പിന് ശേഷം തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ കാറ്റ ഗ റി യി ലെയും അപേക്ഷ കർ അപേക്ഷയും ഒറിജി നൽ പാസ്പോർട്ടും അഡാൻസ് തുക അടച്ച രശീതിയും മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് സമർപ്പി ക്കണം കരിപ്പൂർ വിമാനത്താവളത്തിൽ വ്യോമഗതാഗത രംഗത്തെ പുതിയ സംവിധാനമായ ഗ്ലോബൽ നാവിഗേഷൻ ജി എൻ എസ് എസ് ഇന്ന് പ്രവർത്തിച്ചു തുടങ്ങും പ്രതികൂല കാലാവസ്ഥയിലും വിമാനം റൺവെയിൽ സുരക്ഷിതമായി ഇറക്കാൻ ഗ്ലോബൽ നാവി ഗേഷൻ കൊണ്ട് കഴിയും റൺവേയുടെ മധ്യരേഖാ നിർണയം ദിശാ നിർണയം വാർത്താമിനിമയം തുടങ്ങിയ മെച്ചപ്പെടുത്തുന്ന സംവിധാനങ്ങളും ഇതിലുണ്ട്

രാജ്യങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ സമുദ്രശക്തിയുടെ പങ്ക് എന്നതാണ് ഈ വർഷത്തെ വിഷയം നാവിക സേന മുൻ മേധാവി അഡ്മിറൽ മാധവേന്ദ്ര സിംഗ് മുഖ്യാതിഥിയായി പങ്കെടുക്കും ഗാന്ധി ജയന്തി വാരാഘോഷത്തോടനുബന്ധിച്ച് കണ്ണൂർ കോർപറേഷൻ നടത്തുന്ന ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി ജവഹർ സ്റ്റേഡിയം ശുചീകരിച്ചു പൊതുജന പങ്കാളിത്തതോടെ നടത്തുന്ന ശുചീകരണം മേയർ സുമാ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പിറവം സെന്റ് മേരീസ് വലിയ പള്ളിയുടെ താക്കോൽ കൈമാ റുന്നത് സംബന്ധിച്ച് ഹൈക്കോടതി ഇന്ന് വാദം കേൾക്കും പിറവം പള്ളിയുമായി ബന്ധപ്പെട്ട ചാപ്പലുകളുടെ ഉടമസ്ഥാവകാ ശവും നിയന്ത്രണവും സംബന്ധിച്ച് വിശ്ദീകരണം നൽകാൻ ഗവൺമെന്റിന് ഹൈക്കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരു ന്നു കണ്ണൂർ പരിയാരം ഗവ മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സമിതിയുടെ പ്രഥമ യോഗം വൈകീട്ട് കലക്ട്രേറ്റിൽ ചേരും സമിതി ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടർ ടി

സുഭാഷിന്റെ അധൃക്ഷതയിലാണ് യോഗം കണ്ണൂർ പിണറായിയിലെ കൂട്ടക്കൊലപാതക കേസ് പ്രതി പടന്നക്കരയിലെ സൌമൃ ജയിലിൽ ആത്മഹതൃ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ട് പേരെ ജയിൽ ഡി ജി പി സസ്പെൻഡ് ചെയ്തു കണ്ണൂർ വനിത ജയിൽ സൂപ്രണ്ട് ടി ശകുന്തള അസി സൂപ്രണ്ട് സി

രമ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്

പ്രേമചന്ദ്രൻ എം

കശുവണ്ടി തൊഴിലാളികളുടെ എംപ്ലോയിസ് പ്രൊവിഡന്റ് ഫണ്ട് പെൻഷൻ പ്രൊവിഡന്റ് ഫണ്ട് രേഖകളിൽ തിരുത്തൽ ആധാർ കാർഡ് ബന്ധിപ്പിക്കൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ഇതര ആനുകൂലൃങ്ങൾ എന്നിവ സംബന്ധിച്ച പരാതികൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അദാലത്ത് സംഘടിപ്പിക്കുന്നത് കാസർക്കോട് ചന്ദ്രഗിരി പുഴയിൽ യുവതിയെ കൊന്ന് കെട്ടി താഴ്ത്തിയെന്ന് സംശിയത്തെ തുടർന്ന് പൊലീസ് പുഴയിൽ തിരച്ചിൽ ആരംഭിച്ചു പ്രമീള എന്ന യുവതിയെ കാണാ തുടർന്ന് പ്രാപൊലീസ് നടിത്തിയ തായ തിനെ അന്വേഷണത്തിലാണ് ഭർത്താവ് യുവതിയെ കൊന്നതായി സംശ യിക്കുന്നത്